ഇൻഡോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് രാഷ്ട്രത്തിന് സമർപ്പിക്കും ബീഹാറിൽ എൻ

എ തെരഞ്ഞ്ടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും പറ്റ്നയിൽ ്സ്ങ്കൽപ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധീന്റ ചെയ്യും സി പി ഐ എം കേന്ദ്രീകുമ്മിറ്റിയോഗം ന്യൂഡൽഹിയിൽ സി പി ഐ നേതൃയോഗ്ങ്ങൾ ഇന്ന് തുടങ്ങും

സൂര്യാഘാതത്തിന് സാധ്യത ഉള്ളതിനാൽ മുൻകരുതൽ എടുക്കാൻ നിർദ്ദേശം

ദുബായ് ഓപ്പൺ ടെന്നീസിൽ സ്റ്റെഫാനോവിനെ പരാജയപ്പെടുത്തി സിസ് താരത്തിന് ചരിത്രനേട്ടം

എം അമേത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ അമേത്തിയിൽ ഇന്ത്യോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉദ്ഘാടനം ചെയ്യും

ദേശീയ സുരക്ഷയ്ക്ക് കരുത്ത് പകരാൻ മേക്ക് ഇന്ത്യ പദ്ധതിക്ക് കഴിയുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇന്തോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉത്തർപ്രദേശ് പ്രതിരോധ ഇടനാഴിയ്ക്കും പുതിയ സംരംഭം ഊർജ്ജം പകരും

വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി ഇന്ന് തിട്ടക്കം കുറിക്കും ഊർജ്ജം വിദ്യാഭ്യാസം ആരോഗ്യം നിർമ്മാണ് തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുക ബീഹാർ പി

പാറ്റ്നയിൽ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന സങ്കൽപ്പ് റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ജനതാദൾ യൂണൈറ്റഡ് നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതിഷ് കുമാർ ലോക്ജനശക്തി പ്രസിഡന്റ് റാം വിലാസ് പാസ്വാൻ തുടങ്ങിയ എൻ

ഒൻപത് വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് ജനതാദൾ യു വുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ കർക്കശമാക്കിയിട്ടുണ്ട്

കുപ്വാരയിൽ ഭീകരർ ഒളിച്ചുതാമസിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തിയ സുരക്ഷാ സേനയ്ക്ക് വെടിയുതിർക്കുകയായിരുന്നു

ഇന്നും നാളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ സാധ്യതാ പട്ടികകൾ നൽകും

ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രാഷ്ട്രീയ സ്ഥിതികൾ എന്നിവ രണ്ട് ദിവസത്തെ യോഗത്തിൽ ചർച്ചയാകും

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ മത്സരിക്കുന്ന തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് മണ്ഡലങ്ങളിലേക്ക് പാർട്ടി ജില്ലാ കൌൺസിലുകൾ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്യും മറ്റെന്നാൾ മുതൽ മൂന്ന് ദിവസം ചേരുന്ന ദേശീയ സെക്രട്ടറിയേറ്റും എക്സിക്യുട്ടീവും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാന്നമെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ച കേരള കോൺഗ്രസ് സ്റ് കേരള കോൺഗ്രസിന്റെ രണ്ടാം സീറ്റിൽ ധാരണയായില്ല ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇത് സംബന്ധിച്ച് തീരുമാനത്തിൽ എത്താനായില്ല അധിക സീറ്റ് സംബന്ധിച്ച് ചൊവ്വാഴ്ച ആലുവയിൽ അന്തിമ ചർച്ച നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കേരള കോൺഗ്രസുമായുള്ള ചർച്ച പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ കേരള കോൺഗ്രസ് അധിക സീറ്റെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പാർട്ടി ചെയർമാൻ കെ

പി ജെ ജോസഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് അനുവദിച്ചാൽ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി

മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ജോസഫ് കോട്ടയത്ത് വാർത്താ ലേഖകരോട് പറഞ്ഞു

ഫോട്ടോയും ജനനതീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ രേഖയുമാണ് പേരുചേർക്കാൻ ഓൺലൈനായി പേരുചേർക്കാനുള്ള ആവശ്യമായത് സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പെരിയയിൽ പറഞ്ഞു

ചൂട് ക്രമാതീതമാവുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതത്തിന് സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കണമെന്ന് അധികൃതർ നിർദേശം നൽകി ദുരന്തനിവാരണ വിഭാഗം മെമ്പർ സെക്രട്ടറിപ്പഡോ ശേഖർ കുര്യാക്കോസ് ആകാശവാണിയോട്

കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

കമാനത്തിന്റെയും ഇതര സൌകര്യങ്ങളുടെയും ഉദ്ഘാടനം എൻ

പ്രേമചന്ദ്രൻ എം

ഓഫീസ് പ്ലാറ്റ്ഫോമിലേക്കെത്താൻ നടപ്പാലം വിശാലമായ പാർക്കിംങ്ങ്സൌകര്യം രണ്ടാംപ്രവേശന കവാടത്തോടനുബന്ധിച്ച് സജ്ജമായി

ഒന്ന് തിരുവനന്തപുരം വഴിയുള്ള അനന്തപുരി എക്സ്പ്രസ്സും അടുത്തത് ചെങ്കോട്ട വഴിയുള്ള പഴയ ചെന്നൈ മെയിലിനു സമാനമായ പുതിയ തീവണ്ടിയുമാണ്

നേരത്തെ അമേരിക്കയുടെ ജിമ്മി കോണേഴ്സ് ആണ് നേട്ടം കൈവരിച്ച മറ്റൊരു താരം

ഒരു റിപ്പോർട്ട് ബാബുരാജിന്റെയും ദക്ഷിണാമൂർത്തി്യുടെയും പിൻമുറക്കാരനായി വന്ന് ആസ്വാദക മനസ്സിൽ സ്ഥിർ പ്രതിഷ്ഠ നേടുകയായിരുന്നു രവീന്ദ്ര സംഗീതത്തിന്റെ മാസ്മരിക്ക് വിരഹവും പ്രണയവും നഷ്ടസ്വപ്നങ്ങളുമെല്ലാം രവീന്ദ്രന്റെ ഈണങ്ങൾക്ക് തൂവലൊരുക്കി

ഭാവം ലയം ശ്രുതി എന്നിവയുടെ പൂർണ്ണ സമ്മേളനമായിരുന്നു രവീന്ദ്രൻ ഈണമിട്ട ഗാനങ്ങളുടെ പ്രത്യേകത ഏഴ് സ്വരങ്ങളും തഴുകി വരുന്ന ഗാനമായും പാട്ടിന്റെ പ്രമദവനമായും ഹരിമുരളീരവമായും മലയാളിയെ വിസ്മയിപ്പിച്ച നിരവധി ഗാനങ്ങൾ തിരുവനന്തപുരം സംഗീത കോളേജിൽ യേശുദാസിന്റെ സഹപാഠിയായിരുന്ന രവീന്ദ്രൻ ഗാനമേള വേദികളിലാണ് ആദ്യകാലങ്ങളിൽ സജീവമായത് പിന്നീട് വെള്ളിയാഴ്ച എന്ന സിനിമയിൽ ബാബുരാജ് ഈണം നൽകിയ പാട്ട് പാടിയാണ് ചലച്ചിത്ര രംഗത്ത് എത്തിയത്